വിമാന സർവീസുകൾ ആരംഭിക്കാൻ മുഖൃമന്ത്രി പിണറായി വിജയൻ വിമാനക്കമ്പനികളോട് ആവശ്യപ്പെട്ടു

നാളെ തുടക്കമാകും

ഡി എഫ് ബിജെപി സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ അറിയാം

വച്ചതിനെപ്പറ്റി കളക്ടർക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകാൻ ദേശീയപാതാ അതോറിറ്റി ജനറൽ മാനേജർക്ക് നിർദ്ദേശം

വിമാന സർവീസ് ശബരിമല വിമാനത്താവളത്തിന്റെ അനുമതിക്കായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വിമാനക്കമ്പനി അധികൃതരുമായുള്ള യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കേരളത്തിൽ നിന്നും ആഭ്യന്തര വിദേശ വിമാന സർവീസുകൾ വർധിപ്പിക്കാൻ യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

ഇതിന് മുന്നോടിയായി നാളെ മുതൽ ഒരു മാസം വരെ വോട്ടർ പട്ടികയിൽ പേര് പരിശോധിക്കാനുള്ള അവസരം എല്ലാ സമ്മതിദായകരും വിനിയോഗിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ആകാശവാണിയോട് പറഞ്ഞു

ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ക്കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം നിയോഗിച്ചു ഏഴംഗ സമിതി പ്രവർത്തകരും നേതാക്കളുമായി ആശയിപ്പിനിമയം നടത്തുന്നു

എൻ ഡി എ യിൽ നിന്നും ബിജെപി തന്നെ പാലായിൽ മൽസരിക്കും രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേതൃത്വം അറിയിച്ചു

മെട്രോ റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് തൂണുകളുടെ നിർമ്മാണം ഇരുമ്പുപാലങ്ങൾ തുടങ്ങിയവയെല്ലാം സംഘം സുരക്ഷ കമ്മീഷണറുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഓണത്തിനു തന്നെ സർവീസ് തുടങ്ങാനാണ് കെ എം ആർ എൽ തീരുമാനം നിർദ്ദേശം മണ്ണുത്തി ദേശീയപാതയിലെ നിർമ്മാണപ്രവർത്തനങ്ങൾ നിർത്തിവച്ച പശ്ചാത്തലത്തിൽ ദേശീയപാത അതോറിറ്റി ജനറൽ മാനേജർ ആശിഷ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷംജില്ലാ കളക്ടർ മുമ്പാകെ നേരിട്ട് ദിവേദിയോട് ഹാജരാകാൻ നിർദ്ദേശം മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ അദ്ധ്യക്ഷതയിൽ തൃശൂർ കളക്ടറേറ്റിൽ ചേർന്ന യോഗമാണ് നിർദ്ദേശം നൽകിയത് മന്ത്രിയുടെ നേതൃത്വത്തിൽ കുതിരാൻ സന്ദർശിക്കുമ്പോൾ അനുഗമിക്കാനും ശ്രീ

ദേശീയപാതയിലെ വലിയ കുഴികൾ അടയ്ക്കാൻ ജില്ലാ കളക്ടർ എസ്

ഇതിൽ വീഴ്ച്ചയുണ്ടായാൽ അറസ്റ്റ് ഉൾപ്പടെയുള്ള കർശന നടപടികളുമായി മുന്നോട്ടുപോകാനും യോഗം തീരുമാനിച്ചു

സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി സംഘടിപ്പിച്ചിട്ടുള്ള ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങളും ഇതോടൊപ്പം നടക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഒദ്യോഗിക സമ്മേളനം മുഖ്യമന്ത്രി പിണ്നറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ടി

ആലപ്പുഴ ബീച്ചിന് സമീപത്തെ റിക്രീയേഷൻ മൈതാനത്ത് നിന്നുമാണ് ഹെലികോപ്റ്റർ പുറപ്പെടുന്നത്

ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴത്തുക കുത്തനെ ഉയർത്തിയ കേന്ദ്ര മോട്ടോർവാഹന നിയമ ഭേദഗതി നാളെ പ്രാബലൃത്തിൽ വരും ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചാൽ ഇനി പിഴ അയ്യായിരം രൂപയാണ് നേരത്തെ ഇത് ആയിരം രൂപയായിരുന്നു

മദ്യപിച്ച് വാഹനം ഓടിച്ചാലും പതിനായിരം രൂപ പിഴ നിൽകേണ്ടിവരും

മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് പുതിയ ട്രാക്ക് ഒരുക്കുന്നതിനുള്ള ജോലികൾ അവസാനഘട്ടത്തിലാണ് ഇന്നലെ പെയ്ത കനത്ത മഴ ജോലിയെ തടസപ്പെടുത്തിയിരുന്നു ഒരാഴ്ച മുമ്പാണ് മംഗളൂരുവിന് സമീപത്ത് പാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്

ഈ സാമ്പത്തികവർഷം പ്രാബല്യത്തിലുള്ള ആർ

വൈ കാർഡുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗത്വം പുതുക്കാം കേന്ദ്ര ഗവൺമെന്റിന്റെ എസ്

സി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായ കുടുംബാംഗങ്ങൾക്കും അ അംഗത്വം പുതുക്കാവുന്നതാണ്

ശിഖർ ധവാൻ തിരുനന്തപുരത്ത് നടക്കുന്ന ദക്ഷിണ്ണാഫ്രിക്ക എ ടീമിനെതിരായ ഏകദിന മത്സരത്തിനുള്ള ഇന്ത്യ മുതിർന്ന താരം ശിഖർ ധവാനെ ഉൾപ്പെടുത്തിയ്തായി റിപ്പോർട്ട് അവസാന രണ്ട് ഏകദിനങ്ങൾക്കുള്ള ടീമില്ലാണ് ധവാനെ ഉൾപ്പെടുത്തിയത് പരിക്കേറ്റ വിജയ് ശങ്കറിന് പകരമായിട്ടാണ് ധവാൻ കളിക്കുക

പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്